കെ ശൈലജ ആശുപത്രികളിൽ ചികി ത്സയിൽ കഴിയുന്ന ആരുടേയും ആരോഗ്യ നിലയിൽ ആശങ്കപ്പെടേ ണ്ടതില്ലെന്നും മന്ത്രി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച കേരളത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന് എം പിമാർ ലോക്സഭയിൽ ആവശ്യപ്പെ ട്ടു

രാത്രികാല അടിയന്തര വെറ്ററിനറി ചികിത്സാ സേവന പദ്ധതി എല്ലാ ബ്ലോക്കുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജ യൻ

നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആരുടേയും ആരോഗൃനിലയിൽ ആശ ങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി വൃക്തമാക്കി റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാ രിക്കുകയായിരുന്നു മന്ത്രി വുഹാനിൽ നിന്നും വന്നവരുടെ ആരോഗൃം സംരക്ഷിക്കുക ഒരാളും മരിക്കരുത് സമൂഹത്തിൽ ഒരാൾക്ക് പോലും കൊറോണ പകരരുത് എന്നീ മൂന്ന് കാര്യ ങ്ങൾക്കാണ് ആരോഗ്യ വകുപ്പ് പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി

വ്യാജ പ്രചാരണങ്ങൾ നടത്തിയ ഏഴു പേർക്കെതിരെ ഇതുവരെ കേസെടുത്തായും മന്ത്രി പറഞ്ഞു കേരളത്തിലെ കൊറോണ വൈറസ് ബാധയെ കുറിച്ച് കേന്ദ്ര ആരോഗൃ മന്ത്രി ലോക്സഭയിൽ സമഗ്ര പ്രസ്താവന നടത്തണമെന്ന് സംസ്ഥാ നത്തെ എം പിമാർ ആവശ്യപ്പെട്ടു ശൂന്യവേളയിൽ പ്രശ്നമുന്നയിച്ച ടി എൻ പ്രതാപൻ സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായം നൽക ണമെന്നും സ്ഥിതി വിലയിരുത്താൻ ദുരന്ത നിവാര സംഘത്തെ ഉടൻ അയക്കണമെന്നും പറഞ്ഞു പ്രതാപനെ പിന്തുണച്ച എൻ

അംഗങ്ങളുടെ ആവശ്യം ആരോഗ്യ മന്ത്രിയെ അറിയിക്കാമെന്ന് പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഖ്വാൾ പറഞ്ഞു അതിനിടെ ചൈനയിൽ പഠിക്കുന്ന രണ്ടു വിദ്യാർഥികൾ കോഴിക്കോട്ട് നിരീക്ഷണത്തിൽ കഴിയവെ അനുമതിയില്ലാതെ ഗൾഫിലേക്ക് പോയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

എം ഒ കോഴിക്കോട്ട് അറിയിച്ചു

മറ്റ് രാജ്യങ്ങളിൽ നിന്നെ ത്തിയ മൂന്നു പേരും ഇതിൽപെടും പ്രതിരോധ പ്രവർത്തനങ്ങൾ വില യിരുത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളജിൽ നിന്ന് വിദഗ്ദ സംഘം ഇന്ന് കാസർകോട് ജില്ലയിലെത്തും കൊറോണ രോഗപ്രതിരോധ നടപടികൾ സജീവമായി മുന്നേറുന്ന തൃശൂർ ജില്ലയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികർമായി തുടരുന്നു

വയനാട് ജില്ലയിൽ വിനോദ സഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയെന്ന പ്രചാരണം അടിസ്ഥാന രഹിതമാണെന്നും വിനോദ സഞ്ചാരികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

എം ഒ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ കൊറോണ വൈറസ് പ്രതിരോധപ്രവർത്തനങ്ങൾ ശക്തമാക്കി ജില്ലാമെഡിക്കൽ ഓഫിസറുടെ നേതൃത്വത്തിൽ ബീച്ച് ആശുപത്രിയിൽ സന്ദർശനം നടത്തി ഐസൊലേഷൻ വാർഡിന്റെ പ്രവർത്തനം വിലയിരുത്തി

ഇന്നലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് അധി കൃതർ അറിയിച്ചു

കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന രണ്ടു പേരുടെയും സാമ്പിളുകളിൽ കൊറോണ വൈറസ് സാന്നിധൃമില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി

ഇതോടെ കോട്ടയം ജില്ലയിൽ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്നായി

സ്കൂൾ കോളേജ് അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനയാത്രകൾ ഒഴിവാക്കണമെന്ന് തൃശൂർ ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയിച്ചു ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനമേധാവികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി

രാത്രികാല അടിയന്തര വെറ്റേർനെറി ചികിത്സാ സേവന പദ്ധതി എല്ലാ ബ്ലോക്കുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജ യൻ അറിയിച്ചു

കർഷകരുടെ ക്ഷേമ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരു വനന്തപുരത്ത് മൃഗ സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘ ടിപ്പിച്ച കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമ ന്ത്രി

നാളെ നടക്കുന്ന ന്യൂസി ലാൻഡ് ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും ഞായറാഴ്ചയാണ് ഫൈനൽ ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം

ബംഗുളൂരുവിൽ ഇന്ത്യൻ വിമൻസ് ഫുട്ബാൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കി ബംഗളൂരു യുണൈറ്റഡ് എഫ് സിയെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഗോകുലം കേരള പരാജയപ്പെടുത്തിയത്

എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സിയെ നേരിടും

ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിന്റെ കാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നാളെ കൊല്ലത്ത് നടക്കും ആദ്യ കാർട്ടറിൽ മധ്യപ്രദേശ് സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ യേയും രണ്ടാം കാർട്ടറിൽ മധ്യപ്രദേശ് ഹോക്കി അക്കാദമി പഞ്ചാ ബിനേയും നേരിടും മൂന്നാം മത്സരത്തിൽ ഹരിയാന ഹോക്കി ഒഡീഷയോടും അവസാന ക്വാർട്ടർ ഫൈനലിൽ മഹാരാഷ്ട്ര ഹോക്കി ജാർഖണ്ഡിനോടും ഏറ്റുമുട്ടും രാജ്യത്തിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ എൻ

സി വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും മാലിന്യ നിർമ്മാർജനം ബോധവത്കര ണം ദുരിതാശ്വാസം എന്നീ മേഖലകളിൽ കേഡറ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപർമാണെന്നും മന്ത്രി ഡോ

സി ഗ്രൂപ്പിന് നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യുടെ ബാനർ കോഴിക്കോട് ഗ്രൂപ്പിന് തിരുവനന്തപുരത്ത് സമ്മാനി ക്കുകയായിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എൻ

സി കേഡറ്റുകൾക്ക് ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും ജലീൽ പറഞ്ഞു റിപ്പബ്ലിക്ദിന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായ കേഡറ്റുകൾക്ക് ചടങ്ങിൽ പുരസ്കാരം നൽകി ടൂറിസ്റ്റ് ബസുകളിൽ എസ്

എ നിർദേശിക്കുന്ന നിറംമാറ്റം മൂലം ഉടമ കൾക്ക് അധിക ചെലവ് വരുന്നുവെന്ന പ്രചാരണം വസ്തുതാപരമ ല്ലെന്ന് മന്ത്രി എ

മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് നിർദേശം ബാധകമാകുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് ചെറുക്കാൻ കർമസേന രൂപീകരിക്കുമെന്നും പ്രദേശവാസികൾക്ക് ബോധവത്കരണം നൽകു മെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു സ്ത്രീകൾ തക്കസമയത്ത് പരാതി നൽകാത്തത് നീതി ലഭ്യമാക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം

കൊച്ചിയിൽ വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിങ് കോളജിൽ ആരോഗ്യ ബോധവത്കരണ പരിപാടി സംഘടിപ്പിക്കും കൊറോണ രോഗ ബാധയ്ക്കെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെപ്പറ്റി വിദഗ്ദർ ക്ലാസെടുക്കും ആലപ്പുഴയിൽ ഇന്നലെ രാത്രിയുണ്ടായ വൃതൃസ്ത അപകടങ്ങളിൽ മൂന്നു പേർ മരിച്ചു ദേശീയപാതയിൽ പുറക്കാട് നിയന്ത്രണം വിട്ട കാറി ടിച്ച് സൈക്കിൾ യാത്രികൻ തോട്ടപ്പള്ളി സ്വദേശി സുദർശനനും കഞ്ഞിക്കുഴിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് മുഹമ്മ സ്വദേശി വിഷ്ണുവും ആലപ്പുഴ ചങ്ങനാശേരി റോഡിൽ രാമങ്ക രക്ക് സമീപം മിനി ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ വാടയ്ക്കൽ സ്വദേശി സൈറസുമാണ് മരിച്ചത് ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ രഹസ്യ വിചാരണയ്ക്കിടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ രണ്ടുപേർക്കെതിരെ കേസെടുത്തു അഞ്ചാം പ്രതി സലീം സുഹൃത്ത് ആഷിഖ് എന്നി വർക്കെതിരെയാണ് പ്രത്യേക കോടതി നിർദേശ പ്രകാരം എറണാ കുളം നോർത്ത് പൊലീസ് കേസെടുത്തത് വനംവകുപ്പ് ഓഫീസറെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശൃപ്പെട്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രോട്ടക്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മന്ത്രി കെ രാജുവിനും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകി രഹസ്യാന്ധേ ഷണ വിഭാഗം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ സി

ആധാരത്തിൽ വില കുറച്ചു കാണിച്ച കേസുകൾ തീർപ്പാക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇന്ന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും

കൊറോണ വൈറസ് ബാധ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും സാധ്യമാക്കുന്ന ലബോറട്ട റികളും അനുബന്ധ സംവിധാനങ്ങളും സജ്ജമാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോ ചിക്കണ മെന്ന് കോഴി ക്കോട് നടന്ന പ്രോഫ്കോൺ നേതൃസംഗമം ആവശൃപ്പെട്ടു